ജനങ്ങളെ അഭിസംബോധന ചെയ്യും

ലാലുപ്രസാദ്യാദവിനും ഭാര്യ റാബ്റിദേവിക്കെതിരെയും കുറ്റപത്രം സമർപ്പിക്കാൻ തക്ക തെളിവുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറകടറേറ്റ്

ഏഷ്യൻ ഗെയിംസ് ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ തേജീന്ദ്രർ പാൽസിംങ്ങിന് സ്വർണ്ണം

ആകാശവാണി യുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും ഇത് പ്രക്ഷേപണം ചെയ്യും

പ്രധാനമന്ത്രിയുടെ യൂടൂബ് ചാനലിലൂടെയും ജനങ്ങൾക്ക് പരിപാടി കേൾക്കാം

ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ ആകാശവാണി പ്രാദേശികഭാഷകളിലും മൻകിബാത്ത് പ്രക്ഷേപണം ചെയ്യും

ഗുപ്തയും ഭാര്യ സരള ഗുപ്തയും പ്രതിപ്പട്ടികയിൽ ഉണ്ട് പൂരി റാഞ്ചി എന്നിവിടങ്ങളിലെ റയിൽവെ ഹോട്ടലുകൾ സുജാതാ ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡിന് മറിച്ച് നൽകിയതിൽ ലാലു പ്രസാദ് യാദവും ഐ

സി ടി സി ഉദ്യോഗസ്ഥനും പദവി ദുരുപയോഗം ചെയ്തു എന്നതാണ് കേസ്

കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐയും കുറ്രപത്രം ഫർയൽ ചെയ്തിരുന്നു

മധ്യപ്രദേശ് പശ്ചിമബംഗാൾ ഗുജറാത്ത് മുംബൈ താനെ എന്നിവട ങ്ങളിൽ നിന്നുള്ള വിതരണക്കാരെയാണ് ചോദ്യം ചെയ്തത് കഴിഞ്ഞ മാസം മഹാരാഷ്ട്ര ഫുഡ് ആന്റ് അഡ്മിനിസ്ട്രേഷന് റിലയൻസ് ലൈഫ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ പരാതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത

രാജ്യവ്യാപകമായുള്ള റാക്കറ്റിനെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുക യാണെന്ന് അധികൃതർ അറിയിച്ചു

പ്രതിരോധമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷയായ സമിതിയുടേതാണ് ഈ തീരുമാനം

പദ്ധതി പ്രകാരം ശുചീകരണ പ്രവർത്തനങ്ങളിലെ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചത് ഗോവയാണെന്ന് ആകാശവാണി പ്രതിനിധി അറിയിച്ചു

കേന്ദ്ര സംസ്ഥാന മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും പ്രൊഫ ഷണൽ സ്ഥാപനങ്ങൾക്കും നോമിനേഷനുകൾ സമർപ്പിക്കാം

ഇക്കാരണത്താലാണ് രാജ്യം മുഴുവൻ അദ്ദേഹത്തെ എന്നും ഓർത്തിരിക്കുന്നതെന്നും ശ്രീ

വാജ്പേയിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നാഗ്പൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി പ്രതിപക്ഷ പാർട്ടികളുമായി വാജ്പേയിക്കുണ്ടായിരുന്ന ബന്ധം മികച്ചതാ യിരുന്നുവെന്നും ശ്രീ ഗഡ്കരി കൂട്ടിച്ചേർത്തും അടൽ ബിഹാരി വാജ്പേയിക്ക് ശത്രുക്ക്ൾ ഉണ്ടായിരുന്നില്ലെന്ന് ചടങ്ങിൽ സംസാരിച്ച മഹാരാഷ്ട്ര മുഖ്യന്ത്രിഭൂപ്പേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കെ

തിരിച്ച് സഹോദരൻമാർ സുരക്ഷയും പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും സഹോദരിമാർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യും രക്ഷാബന്ധനോട നുബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി വെങ്കയനാ യിഡുവും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു ഉത്സവം നന്മയുടെ പൈതൃക വികാരങ്ങളെ ശക്തിപ്പെടുത്തി സ്ത്രീകളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സുരക്ഷയും അഭിമാനവും ഉയർത്തിപിടിക്കുന്ന ഒരു സമൂഹത്തിന് പ്രചോദനമാകട്ടെ എന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു സഹോദരീ സഹോദരൻമാർക്കിടയിലെ സന്ദേശത്തിന്റെയും കൂറിന്റെയും പ്രതീകമാണ് രക്ഷാബന്ധൻ എന്ന് ഉപരാഷ്ട്രപതി വെങ്കയ നായിഡു ആശംസാ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു ഹരിത രക്ഷാബ ന്ധൻ ആചരിക്കാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ്ട്ടൂർഷവർദ്ധൻ ട്വിറ്ററിലൂടെ ജനങ്ങളോട് ആഹാനം ചെയ്തു

പരിസ്ഥിതിയെ സ്ർക്ഷിക്കുന്നതിനായുള്ള സാമൂഹിക നീക്ക മാണിതെന്ന് പരിസ്ഥിതി മീങ്ങ് ഹർഷവർദ്ധൻ പറഞ്ഞു

ബാഡ്മിന്റൺ കോർട്ടർ ഫൈനലിൽ പി

ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് കൊറിയയെ നേരിടും

ചൈനയാണ് ഒന്നാം സ്ഥാനത്ത്

രാജി പ്രസിഡന്റ് ഗാനി സ്വീകരിച്ചതായി പ്രസിഡന്റിന്റെ വക്താവ് അറിയിച്ചു

കൊറിയൻ ഉപഭൂഖണ്ഡത്തിലെ ആണവനിരായുധീകരണ നടപടി യിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പ്രസ്താവിച്ച മന്ത്രാലയം ഇതു സംബന്ധിച്ച് അമേരിക്കയ്ക്ക് വ്യക്തമായ മറുപടി നൽകിയതായി അറിയിച്ചു ഉത്തരകൊറിയയുടെ ആണവവിഷയം സംബന്ധിച്ച ചർച്ച കൾക്കായി അടുത്തയാഴ്ച പ്യോങ്യാങ് സന്ദർശിക്കാനിരുന്ന യു

സെക്രട്ടറി മൈക്ക് പോംപോയുടെ യാത്ര കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രസിഡന്റ് ട്രംപ് റദ്ദാക്കിയത്

എഫ്

ശ്രീനഗറിലെ ലസ്ജാൻ ഏരിയായയിൽ വെച്ചാണ് ജവാൻമാർക്കു നേരെ തീവ്രവാദി ഗ്രനേഡ് വലിച്ചെറിഞ്ഞത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ഗോവയിലെ മബൂ സയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ്സ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വിമർശിച്ച അദ്ദേഹം ഗവൺമെന്റിനെ വിമർശിക്കുന്നവർക്ക് ഭരണം എന്താണന്നറിയില്ലെന്നും പറഞ്ഞു